സംവിധാനങ്ങളും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ്വർദ്ധൻ വിലയിരുത്തി

ജനങ്ങളുടെ ഒത്തുകൂടൽ പരമാവധി ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

അവധിയിലുള്ള ഡോക്ടർമാർക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ നിർദ്ദേശം

എൽ എമാരെ ജഡ്ജിയുടെ ചേമ്പറിൽ ഹാജരാക്കാമെന്ന നിർദ്ദേശം സുപ്രീംകോടതി തള്ളി

വിശദാംശങ്ങളിലേക്ക്

കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളും രോഗബാധിതരുമായി ബന്ധപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനുള്ള നടപടികളും സ്വീകരിച്ച സംസ്ഥാനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു ആരോഗ്യ പ്രവർത്തകർക്കു വേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ ഉറപ്പു വരുത്തണമെന്ന് ഡോ

രോഗാപ്രതിരോധം ഉറപ്പാക്കുന്നതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ പരിശോധനാ സംവിധാനങ്ങൾ എന്നിവയെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവു പകരുന്നതിനും വിവിധ മാധ്യമങ്ങളിലൂടെ പ്രചാരണ പരിപാടികൾ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

വൈറസ് പരിശോധനാ ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഐസിഎംആർ തീരുമാനിച്ചതായും ഡോ

കൂടുതൽ പേർ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ടെന്നും കർശനമായു പ്പിച്ചരിശോധന നടപടികൾ വേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വൃക്ടത്മാക്ക്

മദ്രസ പരീക്ഷകൾ എസ് എസ് എൽ

പരീക്ഷാ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നടത്താവുന്നതാണ് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും സുരക്ഷ സംവിധാനങ്ങളോട് സഹകരിച്ചും മുന്നോട്ട് പോകുമെന്ന് മത മേലധികാരികൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു

ഈ മേഖലയിൽ വൈറസ് ബാധ ഏറിവരികയും അതിർത്തികളും വിദ്യാലയങ്ങളും അടച്ചിടാൻ രാജ്യങ്ങൾ നിർബന്ധിതമാകുകയും ചെയ്യുന്നു

കോവിഡ്പിട്ടു ന്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങൾ പൂട്ടിയതു ക്ടാർണം അധ്യയന സമയം നഷ്ടമാകുന്നത് പരിഹരിക്കുന്നിതിനായാണിത്

ബി എസ് ഇ

പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോ കുട്ടിക്കുമിടയിൽ ഒരു മീറ്റർ അകലം ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു

എൽ

ചന്ദ്രചൂഢും ഹേമന്ദ് ഗുപ്തയും അംഗങ്ങളായ ബഞ്ചാണ് കേസ് പരിഗണിച്ചത്

എമാർക്കും സ്വതന്ത്രമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഉറപ്പു വരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസിൽ നാളെ വീണ്ടും വാദം കേൾക്കും

കൂടുതൽ വിവരങ്ങളുമായി ആമിന നജ്മ

അതേസമയം പൂജ അടക്കമുള്ള ആചാരങ്ങൾ തുടരും

ആളപായമൊന്നും ്റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല

ലീവ് കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ എത്തുന്ന സൈനികരെ വിശദമായ ശേഷം മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ

യുടെ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള സൈനിക റിക്രൂട്ട്മെന്റ് പരിപാടികൾ മുഴുവൻ താല്കാലികമായി നിർത്തിവയ്ക്കാനും ക്വിർദ്ദേശം നൽകിയിട്ടുണ്ട്

എന്നാൽ ഇവരിൽ ആർക്കും പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല കൂടുതൽ പേർ ഒത്തുകൂടുന്ന തരം പരിപാടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

കൈയിൽ ഹോം ക്വാറന്റെയ്ൻ എന്ന സീൽ പതിച്ചിരുന്നതിനാലാണ് അധികൃതർക്ക് ഇവരെ തിരിച്ചറിയാനായത്